പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇന്ന് ന്യൂഡൽഹിയിൽ ഉഭയകക്ഷി ചർച്ചു നടത്തും

വേഗത്തിൽ പൂർത്തിയാക്കാൻ് ഇന്ത്യ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്ര ഗവൺമെന്റ

ന് മഹാരാഷ്ട്ര ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മപരിശോധന ഇന്ന് നടക്കും

മീറ്റർ സ്റ്റീപ്പിൾ ചെയ്സിൽ ഒളിമ്പിക്ക് യോഗ്യത നേടി

വ്യാപാര ബന്ധം വികസന രംഗത്തെ സഹകരണം സാംസ്കാരിക വിനിമയം തുടങ്ങി പരസ്പര പ്രാധാന്യമുള്ള വിവിധ വിഷയങ്ങളിൽ ചർച്ച നടത്തുമെന്ന് വിദേശ മന്ത്രാലയ വക്താവ് രവീഷ്കുമാർ അറിയിച്ചു ഇന്തൃയും ബഗ്ലാദേശും ഏഴ് കരാറുകളിലെങ്കിലും ഒപ്പിടും ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഉച്ചയ്ക്ക് ശേഷം രാഷ്ട്രപതി ഭവനിൽ എത്തി രാഷ്ട്രപതി രാംനാഥ് കോവിന്ദുമായി കൂടിക്കാഴ്ച നടത്തും നാല് ദിവസത്തെ സന്ദർശനത്തിനായി ഈ മാസം മൂന്നിനാണ് അവർ ഇന്ത്യയിലെത്തിയത്

പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ ഭാഗത്ത് നിന്നുള്ള അടിസ്ഥാന സൌകരൃ വികസനം നിശ്ചിതസമയത്തിനുള്ളിൽ തന്നെ പൂർത്തിയാകുമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രവീഷ് കുമാർ പറഞ്ഞു ഈ മാസം അവസാനത്തോടെ ഇടനാഴിയുമായി ബന്ധപ്പെട്ട നാലുവരി ദേശീയപാത പൂർത്തിയാകുമെന്ന് അദ്ദേഹം പറഞ്ഞു

കൂടുതൽ വിവരങ്ങളുമായി ശ്രീലത

ഈ മാസം ഏഴ് വരെ പത്രിക പിൻവലിക്കാം

നനേദ് ജില്ലയിലെ ഭോകർ നിയമസഭാ മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചത്

മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ് ശിവസേനയുടെ ഏകനാഥ് ഷിൻഡെ എൻ സി പി നേതാവ് അജിത് പവാർ എന്നിവർ പത്രിക സമർപ്പിച്ചവരിൽ ഉൾപ്പെടുന്നു അതേസമയം സംസ്ഥാനത്തെ പി സി സി അധ്യക്ഷൻ സഞ്ജയ് നിരുപം വിമതസ്വരം ഉയർത്തിയത് കോൺഗ്രസിൽ പ്രതിസന്ധി ഉാക്കിയിട്ടുണ്ട് തെരെഞ്ഞെടുപ്പിൽ കോൺഗ്രസിനായി പ്രചരണത്തിനിറങ്ങില്ലെന്നും പാർട്ടി വിടുമെന്നും അദ്ദേഹം ഭീഷണി മുഴക്കി മുബൈയിലെ ഭൂരിഭാഗം സീറ്റുകളിലും കോൺഗ്രസ് തോൽക്കുമെന്നും ശ്രീ സഞ്ജയ് നിരുപം പറഞ്ഞു ബി ജെ പി ക്കെതിരെ മത്സരിക്കാൻ പ്രാപ്തിയുള്ളവരല്ല കോൺഗ്രസ് സ്ഥാനാർത്ഥികളെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു മറ്റൊരു സംഭവത്തിൽ എം പിയും എൻ സി പി നേതാവുമായ സഞ്ജയ് ദിന പാട്ടീൽ ശിവസേനയിൽ ചേർന്നു ശിവസേന തലവൻ ഉദ്ദവ് താക്കറെയുടെ സാന്നിധൃത്തിലായിരുന്നു ഇത് നേരത്തെ എൻ സി പിയിൽ നിന്ന് സച്ചിൻ ആഹിർ ദിലീപ് സോബൽ എന്നിവർ ശിവസേനയിൽ ചേർന്നിരുന്നു

ഐയ്സ്വാളിലെ സർക്വാത്തിലെ മിസോ ഗവൺമെന്റ് സ്കൂൾ മൈതാനിയിൽ വടക്ക് കിഴക്കൻ കൈത്തറി കരകൌശല മേള അദ്ദേഹം ഉദ്ഘാടനം ച്ചെയ്യും മിസോറാം മുഖ്യമന്ത്രി സോറാംതംഗയും കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗും ചടങ്ങിൽ പങ്കെടുക്കും പിന്നീട് മുഖ്യമന്ത്രിയുമായും ഗവൺമെന്റിതര സംഘടനാ പ്രതിനിധികളുമായും ആഭ്യന്തര്മുന്തി കൂടിക്കാഴ്ച നടത്തും

ഭീകരത തീവ്രവാദം അഴിമതി ആയുധക്കടത്ത് കള്ളപ്പണം വെളുപ്പിക്കൽ മയക്ക് മരുന്ന് കടത്ത് കാലിക്കടത്ത് തുടങ്ങിയ കാര്യങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റ് വിട്ടുവീഴ്ച ചെയ്യില്ലെന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞു ശ്രീ അമിത്ഷായുടെ നേതൃത്വത്തിൽ അതിർത്തി സുരക്ഷ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ വിലയിരുത്താൻ ഉന്നതതല യോഗം ചേർന്നിരുന്നു അതിർത്തി സുരക്ഷ ശക്തമാക്കാനുള്ള വിഷയങ്ങളും യോഗത്തിൽ ചർച്ച ചെയ്തു അതിർത്തിയിലെ സുരക്ഷ ഉദ്യോഗസ്ഥരുടെ പാർപ്പിട ആരോഗൃ പരിശീലന കാര്യങ്ങളിൽ മെച്ചപ്പെട്ട സൌകര്യങ്ങൾ നൽകാൻ ശ്രദ്ധിക്കണമെന്നും ആഭ്യന്തരമന്ത്രി യോഗത്തിൽ വ്യക്തമാക്കി

ഇന്ത്യ അമേരിക്ക സൌഹൃദത്തെക്കുറിച്ചും മഹാത്മാഗാന്ധിയെക്കുറിച്ചും പ്രസംഗത്തിൽ നാൻസി പെലോസി നടത്തിയ പരാമർശങ്ങളിൽപ്പ് പ്രധാനമന്ത്രി സന്തോഷം പ്രകടിപ്പിച്ചു നടപടികളാണ് കാലാവസ്ഥാ ്പ്രൃതീയാനം നേരിടാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീകരിക്കുന്നത്തെന്ന് പ്രസംഗത്തിൽ നാൻസി പെലോസി പരാമർശിച്ചിരുന്നു

ഇന്ത്യ സാമ്പത്തിക ഉച്ചകോടിയിൽ പാകിസ്ഥാനെക്കുറിച്ചുള്ള പരാമർശത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്

കൂടുതൽ വിവരങ്ങളുമായി ശ്രീലത

അവരുടെ സങ്കേതത്തിൽ ഇപ്പോൾ നടത്തിയ പരിശോധനയിൽ സ്ഫോടക വസ്തുക്കൾ നിർമമിക്കാൻ ഉള്ള നിരവധി അസംസ്കൃത വസ്തുക്കൾ കണ്ടെടുത്തു

തമിഴ്നാട്ടിലെ കൃഷ്ണഗിരി ജില്ലയിലാണ് പരീക്ഷണം നടത്തിയത്